പ്രധാനമന്ത്രി നരേന്ദ്രമോദി അൽപ്പസമയത്തിനകം ചെങ്കോട്ടയിൽ നിന്ന് രാഷ്ട്രത്തെ അഭി സംബോധന ചെയ്യും

ഏഴു ജില്ലകളിൽ റെഡ് അലർട്ട് മുല്ല പ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി അൽപ്പസമയത്തിനകം ഡൽഹിയിലെ ചെങ്കോട്ടയിൽ നിന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും ആകാശവാണി നിലയങ്ങൾ പ്രധാ നമന്ത്രിയുടെ പ്രസംഗം നേരിട്ട് പ്രക്ഷേപണം ചെയ്യും അഞ്ചാമത് സ്വാത ന്ത്ര്യദിന പ്രസംഗത്തിൽ ഗവൺമെന്റിന്റെ നേട്ടങ്ങളും ഭാവി പരിപാടികളും പ്രധാനമന്ത്രി പ്രതിപാദിക്കുമെന്നാണ് റിപ്പോർട്ട്

പ്രധാന ചടങ്ങ് നടക്കുന്ന ഡൽഹിയിലും സംസ്ഥാനങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്

അഞ്ഞൂറിലേറെ സിസിടിവി ക്യാമറകളും സ്ഥാപിച്ചി ട്ടുണ്ട് ൾട്ടിട്ടുള് അനാവശ്യ വിവാദങ്ങളിൽ പെട്ട് രാജൃത്തിന്റെ വികസനം തടസ്സപ്പെടു ത്തരുതെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു രാഷ്ട്രം ദീർഘകാല മായി ലക്ഷ്യമിട്ടിരുന്ന ഒട്ടേറെ കാര്യങ്ങൾ കൈവരിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സ്വാതന്ത്ര്യദിന തലേന്ന് ആകാശവാണി ദൂരദർശൻ വഴി രാഷ്ട്രത്തോട് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി ഹിംസയേക്കാൾ ശക്തി അഹിംസക്കാണെന്നായിരുന്നു മഹാത്മാഗാന്ധി യുടെ ഏറ്റവും വലിയ മന്ത്രമെന്നും രാഷ്ട്രപതി പറഞ്ഞു വനിതകൾക്ക് നമ്മുടെ സമൂഹത്തിൽ സവിശേഷ സ്ഥാനമുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തി ന്റെ വ്യാപനം രാജ്യത്തെ സ്ത്രീകളുടെ സ്വാതന്ത്യത്തിന്റെ വ്യാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും രാഷ്ട്രപതി പറഞ്ഞു ദീർഘകാലമായുള്ള പല ലക്ഷ്യങ്ങളും നേടുന്നതിന്റെ തൊട്ടടുത്താണ് നാം നിൽക്കുന്നത് എല്ലാ വർക്കും വൈദ്യുതി ലഭ്യത തുറസ്സായ സ്ഥലങ്ങളിലെ വിസ്സർജ്ജനം നിർമ്മാർജ്ജനം ചെയ്യൽ ഭവനരഹിതരില്ലാത്ത അവസ്ഥ സൃഷ്ടിക്കൽ അതി ദാരിദ്ര്യം നിർമാർജ്ജനം ചെയ്യൽ എന്നിവ സാദ്യമായതും കൈവരിക്കാവു ന്നതാണ്

വിവാദ വിഷയങ്ങളും ബാഹ്യ ചർച്ചകളും നമ്മുടെ ശ്രദ്ധതിരിക്കരുതെന്നും രാഷ്ട്രപതി പറഞ്ഞു

കശ്മീരിൽ ഭീകരരുമായി ഏറ്റുമുട്ടലിൽ വീരമൃത്യും വരിച്ച സിപ്പോയി വ്രഹ്മപാൽ സിംഗിന് കീർത്തിചക്ര സമ്മാനി ക്കും

രാഷ്ട്രീയ റൈഫിൾസിലെ ക്യാപ്റ്റൻ രാകേഷ് നായർക്ക് സേനാ മെഡൽ സമ്മാനി ക്കും കരസേനയിലെ മൂന്നു സൈനികർ ബാറ്റും സേനാമെഡലിന് അർഹ രായി

ടെ റാട്ട്ടിട്ടു സ്തുത്യർഹ സേവനത്തിന് കേരളത്തിൽ നിന്ന് ആറു പേർ രാഷ്ട്രപതി യുടെ പൊലീസ് മെഡലിന് അർഹരായി കോഴിക്കോട്ടെ ക്രൈംബ്രാഞ്ച് സി

ഡി വിഭാഗത്തിലെ പൊലീസ് സൂപ്രണ്ട് പി ബി രാജീവ് തിരുവനന്തപു രത്ത് പൊലീസ് ക്രൈംബ്രാഞ്ച് സി

ഷാനവാസ് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയിലെ ഇൻസ്പെക്ടർ ബി വിപിൻ ചന്ദ്രൻ വിജി ലൻസ് ഡയറക്ടേറ്റിലെ ഡിവൈ

പി ബിജുമോൻ ഇ എസ് ആലപ്പുഴ വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോയിലെ ഡെപ്യൂട്ടി പൊലീസ് സൂപ്രണ്ട് റക്സ് ബോബി അരവിന്ദ് തിരുവനന്തപുരത്ത് വിജിലൻസ് പ്രത്യേക അന്വേഷണ യൂണിറ്റ് ഒന്നിലെ സബ് ഇൻസ്പെക്ടർ ആർ പ്രകാശ് എന്നിവ രാണ് ബഹുമതിക്ക് അർഹരായത്

വിവിധ സേനാവിഭാ ഗങ്ങളുടെയും അശ്വാരൂഢ സേന എൻ

സി സ്കൌട്ട് ഗൈഡ്സ് സ്റ്റുഡന്റ്സ് പൊലീസ് കേഡറ്റുകൾ സൈനിക് സ്കൂൾ തുടങ്ങിയ വിഭാഗ ങ്ങളുടെയും അഭിവാദ്യം മുഖ്യമന്ത്രി സ്വീകരിക്കുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്യും

രുട്ട്ട്ടറിട്ടുണ്ട ജില്ലാ ആസ്ഥാനങ്ങളിൽ രാവിലെ മന്ത്രിമാർ ദേശീയപതാക ഉയർത്തി പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും

അടിച്ചമർത്ത ലുകൾക്കെതിരായി ചരിത്രപരമായ സമരം നടത്തി സ്വാതന്ത്ര്യം നേടിയെ ടുത്ത ജനതി എന്ന നിലയിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും ന മ്മ ട ജനാധിപത്യ പാരമ്പര്യത്തിന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാനും നമുക്ക് ഉത്ത രവാദിത്വമുണ്ടെന്ന് ഗവർണർ പറഞ്ഞു

ജനാ ധിപത്യവും മതനിരപേക്ഷതയുമാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ ശക്തിസ്രോത സ്സെന്നും മതനിരപേക്ഷത നിലനിന്നാലെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും നിലനിൽക്കൂ ചിന്ത ജനങ്ങളിലാകെ ഉണർത്താൻ സ്വാതന്ത്ര്യദിനാഘോഷം സഹായിക്കട്ടെയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

സ്കൂളുകളിൽ ദേശീയപ താക ഉയർത്തേണ്ടത് നിർബന്ധമാണെന്നും വിദ്യാർത്ഥികൾക്ക് ഹാജർ നിർബന്ധമില്ലെന്നും അവർ പറഞ്ഞു സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് റാലികൾ ഒഴിവാക്കണമെന്നും കലക്ടർമാർ നിർദേശിച്ചു ടുറിപ്പെടു സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തി നടിയിലായി തീവ്രമായ മഴയുടെ സാഹചര്യത്തിൽ വയനാട് ഇടുക്കി പാല ക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർക്കോട് ജില്ലകളിൽ ഇന്നു റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി വയനാട് ജില്ലക്ളിൽ മറ്റന്നാൾ വരെയും ആലപ്പുഴ എറണാകുളം കോട്ടയം ജില്ലകളിൽ ഇന്നും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്

ഒരു മണിക്കൂറിനു ശേഷം മൂന്നു ഷട്ടറുകൾ അടച്ചു

രുവെട്ടിട്ടു കനത്ത മഴയിൽ വ്യാപകമായി മണ്ണിടിച്ചിൽ ഉള്ളതിനാൽ വയനാട് ചുര ത്തിലും മലയോര റോഡുകളിലും വാഹന ഗതാഗതം പരിമിതപ്പെടുത്തണ മെന്ന് കോഴിക്കോട്ട് ജില്ലാ കലക്ടർ യു വി ജോസ് അറിയിച്ചു മലയോര മേഖലയിൽ വെള്ളപ്പൊക്കവും ഉരുൾപ്പൊട്ടലും മണ്ണിടിച്ചിലും തുടരുന്നതി നാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കലക്ടർ പറഞ്ഞു

ഒരാളെ കാണാതായി രാത്രി എട്ടോടെയായി രുന്നു അപകടം ള്ളിട്ടുള കണ്ണൂർ ഇരിട്ടി വാണിയപ്പാറ പാറക്കാമലയിൽ ഉരുൾപ്പൊട്ടി പ്രദേശം ഒറ്റപ്പെട്ട നിലയിലാണ് ശാന്തിഗിരിയിൽ വീടുകളിൽ വിള്ളലുണ്ടായി

കൊട്ടിയൂരിൽ രണ്ടു വീടുകൾ പൂർണമായും തകർന്നു ബാവലി ചീങ്കണ്ണിപുഴകൾ കരകവിഞ്ഞൊഴുകുകയാണ് രുട കനത്ത മഴയും ഡാമുകൾ തുറന്നതും മൂലം പാലക്കാട് നഗരമടക്കം ജില്ല മുഴുവനും പ്രളയക്കെടുതിയിലായി നദികൾ കരകവിഞ്ഞൊഴുകുന്ന തിനാൽ തീരങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളംകയറി

നെല്ലിയാമ്പതി റോഡിൽ മരം കടപുഴകി വീണ് നാലു മണിക്കു റോളം ഗതാഗതം തടസ്സപ്പെട്ടു വാളയാർ വേലഞ്ചേരി മലയിൽ വീണ്ടും ഉരുൾപ്പൊട്ടി

ഭർത്താവ് ആസിഫും ഒരു കുട്ടിയും വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ് പുലർച്ചെ മൂന്നു മണിയോടെയാ യിരുന്നു സംഭവം രക്ഷാപ്രവർത്തനം തുടരുന്നു

പമ്പയിൽ ജലനിരപ്പ് ഉയരുന്നത് കാരണം കോഴഞ്ചേരി റാന്നി തിരുവല്ല താലൂക്കുകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി അപ്പർ കുട്ട നാട് മേഖലകളിലെയും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്

ദർശ്ശിക കനത്ത മഴയിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ തട്ടി തൃശൂരും കോഴിക്കോട്ടുമായി രണ്ടു പേർ മരിച്ചു തൃശൂർ വലപ്പാട് സ്വദേശി രവീന്ദ്രൻ കോഴിക്കോട് വടക്കര കണ്ണംക്കുഴി ശ്രീധരൻ എന്നിവരാണ് മരിച്ചത്

ഓച്ചിറയിൽ മൂന്നു വീടുകൾ ഭാഗികമായി തകർന്നു കൊട്ടാരക്കര താലൂക്കിൽ വാഴോട് ഒരു വീടിനു മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു

അസുഖബാധയെത്തു ടർന്ന് കൊച്ചി കാക്കനാട് പടമുകളിലെ വീട്ടിൽ ഇന്നലെ അർദ്ധരാത്രിയോ ടെയായിരുന്നു അന്ത്യം

മലയാളകവിത യിൽ സ്വന്തം ഹാസ്യസാഹിത്യ സാമ്രാജ്യം കെട്ടിപടുത്ത കവിയായിരുന്നു ചെമ്മനം ചാക്കോ ആളില്ലാ കസേരകൾ വിളംമ്പരം കനകാക്ഷരങ്ങൾ നെല്ല് ഇന്ന് പുത്തരി ഭൂമിക്കുലുക്കം അമ്പുംവില്ലും തുടങ്ങിയവയാണ് അദ്ദേഹ ത്തിന്റെ കവിതാഗ്രന്ഥങ്ങൾ ബാലസാഹിത്യ കവിതകളും കഥകളും അദ്ദേ ഹത്തിന്റേതായുണ്ട് നിരവധി ലേഖന സമാഹാരങ്ങളും അദ്ദേഹം രചിച്ചു

കുഞ്ചൻ നമ്പ്യാർ കവിതാ പുരസ്കാരം മഹാകവി ഉള്ളൂർ കവിതാ പുരസ്കാരം സഞ്ചയൻ അവാർഡ് തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭി ച്ചിട്ടുണ്ട് സംസ്കാരം ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് മുളക്കുളം മണ്ണുക്കുന്നേൽ സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടക്കും

ഇന്ന് രാവിലെ ആറിനും ആറരക്കും മധ്യേയാണ് നിറപ്പുത്തരി ആഘോഷം സന്നിധാനത്ത് നടന്നത് പമ്പ മണപ്പുറവും ത്രിവേണി പാലവും വെള്ളത്തിൽ മുങ്ങിയതോടെ ഇന്നലെ നട തുറക്കാൻ തന്ത്രിക്ക് ശബരിമലയിൽ എത്താൻ കഴിയാത്തതിനെത്തു ടർന്ന് മേൽശാന്തിയാണ് നട തുറന്നത്

നെൽക്കതിർ അവാർഡ് പാലക്കാട് ജില്ലയിലെ തളൂർ ആലങ്കോട് പാടശേഖര സമിതിക്ക് ലഭിച്ചു കർഷ കോത്തമ അവാർഡ് കാസർകോട് ജില്ലയിലെ പി എ രാജനും കർഷക ജ്യോതി അവാർഡ് പാലക്കാട് സ്വദേശി എം മുരുകേശിനും തൃശൂർ സ്വദേശി വി വി ശശിക്കും ലഭിച്ചു ള്ൾകും കശുവണ്ടി തൊഴിലാളികൾക്ക് ഓണത്തോടനുബന്ധിച്ച് ഒമ്പതിനായിരു രൂപ ബോണസ്സ് അഡാൻസായി നൽകാൻ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗം ത്രീരുമാനിച്ചു

ള്ളെടുക ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി സംസ്ഥാന ഗവൺമെന്റ് നട പ്പാക്കിയ സൌജന്യ ഇൻഷൂറൻസ് പദ്ധതി ആവാസിന്റെ ഭാഗമായി ഒഡീഷ സ്വദേശിനിക്കു മരണാനന്തര സഹായം അനുവദിച്ചു